നിയമസഭാ സമ്മേളനം വിളിച്ചു

ഇന്ത്യൻ താരങ്ങൾക്ക് മൂന്ന് വെങ്കലം

എ മാർ സത്യപ്രതിജ്ഞ ചെയ്യും പ്രത്യേക നിയമസഭാ സമ്മേളനത്തിനുശേഷം പ്രോട്ടെം സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ട കാളിദാസ് കൊലംകർ കക്ഷികളോട് വിശ്വാസ വോട്ടെടുപ്പ് തേടാൻ ആവശ്യപ്പെടും

എന്നാൽ മുഖ്യമന്ത്രിയായി നേരത്തെ ചുമതലയേറ്റ ദേവേന്ദ്ര ഫട്നവിസ് ഇന്നലെ വൈകുന്നേരം രാജിവെച്ചിരുന്നു

സി പി നേതാവുമായ അജിത് പവാർ രാജിവെച്ചതോടെ തന്റെ ഗവൺമെന്റിന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടതായി മുംബൈയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം അറിയിച്ചു ബിജെപി കുതിരക്കച്ചവടത്തിൽ ഏർപ്പെടില്ലെന്നും ഉത്തരവാദിത്വമുള്ള പ്രതിപക്ഷമായി പ്രവർത്തിക്കുമെന്നും ശ്രീ

അതേസമയം ശിവസേന എൻ സി

കോൺഗ്രസ് സഖ്യകക്ഷി യോഗം ഉദ്ധവ് താക്കറെയെ നിയമസഭാ കക്ഷിനേതാവായി തെരഞ്ഞെടുത്തു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ജനുനസ്മൃയത്ത് രേഖപ്പെടുത്തിയതിൽ നിന്നും ലിംഗവിത്യാസം ഉണ്ടാവുകയാണ്ണെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളെ ട്രാൻസ്ജെൻഡർ എന്ന വിഭാഗ്ഗത്തിൽപ്പെടുത്താൻ നിയമം വ്യവസ്ഥ ചെയ്യുന്നു

രാജ്യസഭ ഇത് നേരത്തെ പാസ്റ്റാക്കിയിരുന്നു

കേന്ദ്ര ഭവന നഗരകാര്യ വകുപ്പ് മന്ത്രി ഹർദ്ദീപ് സിങ് പുരിയാണ് ബിൽ അവതരിപ്പിച്ചത്

ന്യൂഡൽഹിയിൽ സ്വകാര്യ ചാനൽ സംഘടിപ്പിച്ച കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദശാബ്ദങ്ങളായി നേരിട്ടുകൊണ്ടിരുന്ന നിരവധി പ്രശ്നങ്ങളാണ് പരിഹരിക്കപ്പെട്ടതെന്ന് അദ്ദേഹം പറഞ്ഞു പ്രശ്നങ്ങളിൽ നിന്നും പരിഹാരങ്ങളിലേക്ക് രാജ്യം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങളുടെ അഭിലാഷങ്ങൾ പൂർത്തീകരിക്കുന്നതിന് അക്ഷീണം പ്രവർത്തിക്കാൻ ഗവൺമെന്റിനെ അവർ തെരഞ്ഞെടുത്തിരിക്കുകയാണ് അഴിമതി വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ വികസന തടസ്സം ഭീകരാക്രമണം തുടങ്ങിയവയാണ് അഞ്ച് വർഷങ്ങൾക്കു മുമ്പ് ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങൾ എന്നാൽ വെല്ലുവിളികൾ ഏറ്റെടുത്ത് അവയ്ക്ക് പരിഹാരം കണ്ടെത്തി ഗവൺമെന്റ് മുന്നോട്ട് നീങ്ങുകയാണെന്ന് ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു

ജമ്മു കശ്മീർ ക്ക്രെന്ദ്രണ പ്രദേശത്തെ ബുദ്ഗാം ജില്ലയിൽ രണ്ട് ഗ്രാമങ്ങളിലുള്ള ഭൂമിയാണ് ക്കൂപ് വത്താലിയുടെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും പേരിലാണ് ഭൂമി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കള്ളപ്പണം വെളുപ്പിക്കൽ നിയന്ത്രണ നിയമപ്രകാരം ഈ വർഷം ഏപ്രിലിൽ വതാലിയുടെ സ്വത്തുക്കൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ജപ്തി ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് എൻ ഐ എ രജിസ്റ്റർ ചെയ്ത കേസിൽ തീഹാർ ജയിലിൽ കഴിയുകയാണ് വതാലി

പ്രദേശത്ത് സ്ഫോടകവസ്തുക്കളുടെ സാന്നിദ്ധ്യമുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ സഹകരിക്കണമെന്നും നിർദ്ദേശിച്ചു പുൽവാമയിലെ പച്ചാർ രാജ്പോറ പ്രദേശത്ത് ഇന്നലെയുണ്ടായ ഏറ്റുമുട്ടലിൽ രണ്ട് ഭീകരർ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് പോലീസിന്റെ നടപടി

എസ് ആർ ഒ നടത്തുന്ന ആദ്യ വിക്ഷേപണമാണിത് അഞ്ച് വർഷമാണ് കാർട്ടോസാറ്റിന്റെ പ്രവർത്തന കാലാവധി

നിക്കോട്ടിനും മറ്റ് രാസവസ്തുക്കളും ഇലക്ട്രോണിക്ക് ഉപകരണങ്ങൾ ഉപയോഗിച്ച് ചൂടാക്കി സിഗരറ്റ് പോലെ വലിക്കാൻ ഉപ്പ്യോഗിക്കുന്നവയെല്ലാം നിരോധനത്തിന്റെ പരിധിയിൽപ്പെടും ഒരു വീർഷ്ഷംവരെ തടവോ ഒരു ലക്ഷം രൂപ പിഴയോ ഇവ രണ്ടുമോ ശിക്ഷയായി ബിൽ വ്യവസ്ഥ ചെയ്യുന്നു തുടർന്നും നിയമം ലംഘിച്ചാൽ അഞ്ചു ലക്ഷം രൂപ പിഴയോടുകൂടി മൂന്നുവർഷം തടവും ഉണ്ടാകും ശിക്ഷാ ഭീതി ഇല്ലാതെ പരമ്പരാഗത സിഗററ്റുകൾ വിറ്റഴിക്കുമ്പോൾ എന്തിനാണ് ഈ സിഗററ്റിനുമാത്രം നിരോധനം കൊണ്ടുവരുന്നതെന്ന് കോൺഗ്രസ് നേതാവ് ആധിർ രഞ്ജൻ ചൌധരി ആരാഞ്ഞു ബില്ലിന്മേലുളള ചർച്ചയിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോ ഹർഷവർധൻ ഇന്ന് മറുപടി നൽകും ന്യൂസ് ഡെസ്ക് ആകാശവാണി

നാല് കിലോമീറ്ററിനുള്ളിലെ യുദ്ധ ടാങ്കറുകൾ നശിപ്പിക്കാനുള്ള കഴിവ് ഇവയ്ക്കുണ്ട് വാഹനങ്ങൾ ഹെലികോപ്റ്ററുകൾ കപ്പലുകൾ തുടങ്ങിയവയിൽ നിന്നും പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്ന മിസൈൽ സ്പൈക്കുകൾ മലനിരകളിലും താഴ്ന്ന പ്രദേശങ്ങളിലും വിന്യസിക്കാൻ കഴിയും

ജയശങ്കർ ഭരണഘടനാ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനാധിപത്യം മനുഷ്യാവകാശം തുടങ്ങിയവയ്ക്കായി നിലകൊള്ളുന്ന ഓരോരുത്തരും ഭീകരതയ്ക്കെതിരെ പോരാടാൻ ഒരുമിക്കണമെന്നും ശ്രീ

അനുച്ഛേദങ്ങൾക്കും ഷെഡ്യൂളുകൾക്കും അപ്പുറം ജനങ്ങളുടെ പ്രതീക്ഷകളുടെയും അഭിലാഷങ്ങളുടെയും പ്രതീകമാണ് ഇന്ത്യൻ ഭരണഘടന

പ്രതിരോധ സേനകളുടെ ഏക്റീകരണവും സംയോജനവും ഊർജിതപ്പെടുന്നതിനായാണ് പ്രതിരോധ സേനാ അംഗങ്ങളുടെ തലവനെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത് എന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ കേന്ദ്ര പ്രതിരോധ സഹമന്ത്രി ശ്രീപദ് നായിക് പറഞ്ഞു സേനാ വിഭാഗങ്ങൾ വ്യവസായികൾ ഗവേഷകർ വികസന കേന്ദ്രങ്ങൾ അക്കാദമിക വിദഗ്ദ്ധർ എന്നിവരുടെ സജീവ പങ്കാളിത്തം സെമിനാറിന്റെ ആദ്യ ദിനത്തിൽ ഉണ്ടായിരുന്നു

ടി

പൊതു ്താൽപര്യ മേഖലയിലെ മൌലിക നിയമങ്ങൾ ലംഘിച്ച് അഴിമതിയും മറ്റ് അനധികൃത പ്രവർത്തനങ്ങളും നടത്തിയതിനാണ് ഇവർ സി ബി

ഇന്ന് നടക്കുന്ന മൂന്ന് കോമ്പൌണ്ട് ഫൈനൽ മത്സരങ്ങളിൽ ഇന്ത്യൻ താരങ്ങൾ മാറ്റുരയ്ക്കും

ഉത്ത്ർപ്രദേശിന്റെ അക്ഷയ്കുമാറിനെയാണ് രണ്ടു മണിക്കൂർ ്യൂീണ്ട്ട് മ്ൽസരത്തിൽ പരാജയപ്പെടുത്തിയത്